ത തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ

വാർത്തകൾ വിശദമായി വരാനിരിക്കുന്ന സംസ്ഥാന പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉപ തെരഞ്ഞെടുപ്പുകളിലും പ്രചാരണമടക്കം പ്രവർത്തനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കോവിഡ് സാഹചര്യം മുൻ നിർത്തിയാണ് നടപടി വീടുകൾ കയറിയിറങ്ങി പ്രചാരണം നടത്തുന്ന സംഘത്തിൽ പരമാവധി അഞ്ച് പേരെയേ ഉൾപ്പെടുത്താവൂ റോഡ് ഷോ സമ്മേളനം റാലി എന്നിവയിൽ കോവിഡ് മാർഗ്ഗ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം മാസ്ക്കുകളും തെർമൽ സ്കാൻ പരിശോധനയും ഓരോ പോയിന്റിലും നിർബന്ധമാണ് പൊതു പരിപാടികളിൽ സാനിറ്റൈസറും സോപ്പും വെള്ളവും ലഭ്യമാക്കണം സാമൂഹിക അകലവും നിർബന്ധമാണ് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലും ശരീര താപനില പരിശോധിക്കണം ഓരോ സംസ്ഥാനത്തെയും കോവിഡ് പ്രതിരോധ പരിപാടികൾ നിരീക്ഷിക്കാൻ നോഡൽ ഓഫീസർമാരെയും നിയമിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി രുഭ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് രാജിവെച്ച അശോക് ലെവാസയ്ക്ക് പകരം മുൻ ധനകാര്യ സെക്രട്ടറി രാജീവ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു

ദേശ തിരുവന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു വിമാനത്താവള കൈമാറ്റം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ തീർപ്പാകുന്നതുവരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഉപ ഹർജി സമർപ്പിച്ചത് ഹൈക്കോടതി തിങ്കളാഴ്ച ഹർജി പരിഗണിച്ചേക്കും അതിനിടെ പൊതു സ്വകാര്യ പങ്കാളിത്വത്തിൽ രണ്ട് വിമാനത്താവളങ്ങൾ നടത്തുന്ന സംസ്ഥാന ഗവൺമെന്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സ്വകാര്യ വൽക്കരണത്തെ എതിർക്കുന്നത് യുക്തി രഹിതമായ നടപടിയാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ന്യൂഡൽഹിയിൽ പ്രസ്താവനയിൽ പറഞ്ഞു സ്വകാര്യ വൽക്കരണത്തിന് എതിരാണെങ്കിൽ എന്തിനാണ് സംസ്ഥാനം ലേല നടപടികളിൽ പങ്കെടുത്തതെന്നും പുരി ചോദിച്ചു വിമാനത്താവള കൈമാറ്റത്തിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ച് സി

എം രാജ്യസഭാ കക്ഷി നേതാവ് എളമരം കരീം അവകാശ ലംഘനത്തിന് നോട്ടീസും നൽകിയിട്ടുണ്ട് രുദ ഓണാഘോഷങ്ങൾക്ക് നാന്ദി കുറിച്ച് ഇന്ന് അത്തം പഴമയും പാരമ്പര്യവും നിറയുന്ന തിരുവോണത്തിലേക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ നഷ്ടമാകുന്ന ഓണപ്പൊലിമയുടെ ഗൃഹാതുര ചിന്തകളുമായി ന്യൂസ് ഡസ്ക്കിൽ നിന്ന് അനുഷ ആത്മപ്രകാശ് വോയ്സ് ദേദ കോവിഡ് കൂച്ചുവിലങ്ങിട്ട ഓണനാളുകളാണ് ഇത്തവണ മലയാളികൾക്ക് ഓണത്തെ ആഘോഷമാക്കാവുന്ന സാഹചര്യം ഒരിടത്തുമില്ല അതുകൊണ്ടുതന്നെ ആരവങ്ങളും ആൾക്കൂട്ടങ്ങളും ഇല്ലാത്ത വീട്ടോണമാണ് ഇക്കുറി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടിലെ ത്താവുന്ന സാഹചര്യമില്ല വീട്ടിലെത്തിയാൽ ക്വാറന്റീനിൽ പോകേണ്ടി വരുന്നതിലും നല്ലത് വരാതിരിക്കുന്നതല്ലേയെന്ന ചോദ്യമാണ് മറുനാടൻ മലയാളിയുടേത് പൂക്കളങ്ങൾക്കു പോലും ഇക്കുറി പകിട്ടു കുറയും മറുനാടൻ പൂക്കൾക്കു പകരം പ്രാദേശികമായി ലഭിക്കുന്ന പൂക്കൾ ഉപയോഗിച്ചു പൂക്കളമിടാനാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടത്

ഓണത്തിന് തുടക്കം കുറിക്കുന്ന ഇന്നത്തെ തൃപ്പൂണിത്തുറ അത്തച്ചമയം ചടങ്ങിലൊതുക്കും പൂമുറ്റങ്ങളും പൂവിളിയും മനസ്സിൽ നിറച്ച് കോവിഡിനെതിരെ പ്രതിരോധമുയർത്തുന്ന ഒരുമയുടെ സന്ദേശത്തോടെയാവട്ടെ ഇത്തവണ അത്തവും പത്തോണവും രുര സംസ്ഥാനത്ത് ഇന്നലെയും രണ്ടായിരത്തിനടുത്ത് കോവിഡ് രോഗികൾ

ശേഷിക്കുന്ന ജില്ലകളിൽ നൂറിൽ താഴെയാണ് രോഗികളുടെ എണ്ണം

സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് ചേരും ആരോഗ്യ പ്രവർത്തകർ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഉച്ചയ്ക്കുശേഷം ചേരുന്ന വീഡിയോ കോൺഫറൻസ് യോഗത്തിൽ പങ്കെടുക്കും

സി മൊയ്തീൻ കെ കെ ശൈലജ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയവരും യോഗത്തിനെത്തും രുമ കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി നീണ്ടകര അഴീക്കൽ ഹാർബറുകൾ രണ്ട് ദിവസത്തേക്ക് അടച്ചു ഹാർബറിൽ തൊഴിലാളികൾക്ക് രോഗം സ്ഥിരീകരിച്ചതിനെത്തുടർന്നാണ് നടപടി നേരത്തെ അടച്ച ശക്തികുളങ്ങര ഹാർബർ അണുമുക്തമാക്കിയ ശേഷം രണ്ട് ദിവസത്തിനകം തുറക്കും

അത്തം മുതൽ തിരുവോണം വരെ സാംസ്കാരിക മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് വഴി വിവിധ സംസ്ഥാനങ്ങളിലെ കലാ സാംസ്കാരിക പരിപാടികൾ കാണാം രാത്രി ഏഴ് മുതൽ എട്ടര വരെയാകും പരിപാടികൾ രുമ ഓണാഘോഷത്തിൽ ഒരു കുടുംബത്തിനും കോവിഡ് മൂലം പ്രയാസമുണ്ടാകരുതെന്നാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങൾ എല്ലാവരിലും എത്തിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് തിരുവനന്തപുരത്ത് സപ്ലൈക്കോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹി ക്കുകയായിരുന്നു മുഖ്യമന്ത്രി രുമ ഓണത്തിരക്കിൽ കോവിഡ് പ്രതിരോധ ജാഗ്രത മറക്കരുതെന്ന് മന്ത്രി ജെ

മാർക്കറ്റുകളിൽ വിൽക്കാൻ മത്സ്യം വേണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടാൽ മത്സ്യഫെഡ് അത് നൽകണമെന്നും മന്ത്രി കൊല്ലത്ത് അവലോകന യോഗത്തിൽ പറഞ്ഞു രദേ കോഴിക്കോട് ജില്ലയിൽ ഓണത്തോടനുബന്ധിച്ച എല്ലാ പരിപാടികളിലും കോവിഡ് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടു

രുര കണ്ണൂർ ജില്ലയിൽ ഓണക്കാലത്ത് വ്യാപാര സ്ഥാപനങ്ങൾ വൈകിട്ട് ആറുവരെ തുറക്കാൻ നിബന്ധനകളോടെ ജില്ലാ കലക്ടർ അനുമതി നൽകി കണ്ടെയ്ൻമെന്റ് സോണുകളിൽപ്പെടാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് അനുമതി

രുമ പരിശീലകയും മുൻ കായിക താരവും മലയാളിയുമായ ജിൻസി ഫിലിപ്പിന് ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചു

ഈ വർഷത്തെ ദേശീയ കായിക അവാർഡുകൾ ഇന്നലെ പ്രഖ്യാപിച്ചപ്പോൾ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ അടക്കം അഞ്ചു പേർക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു

ദർദ ഇന്ന് വിനായക ചതുർത്ഥി കൈലാസത്തിൽ നിന്ന് മഹാഗണപതി ഭൂമിയിലെത്തിയ ദിവസമെന്ന വിശ്വാസത്തോടെയാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഗണപതി വിഗ്രഹങ്ങൾ ഇന്ന് പ്രതിഷ്ഠിക്കും

കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതുകൊണ്ട് ഇത്തവണ വിനായക ചതുർത്ഥി ആഘോഷങ്ങളും പേരിലൊതുങ്ങും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും ഉൾപ്പെടെ പ്രമുഖർ ജനങ്ങൾക്ക് വിനായക ചതുർത്ഥി ആശംസകൾ നേർന്നു

ശേഷിക്കുന്ന അഞ്ച് പേർക്കായി ഇന്നും തെരച്ചിൽ തുടരും ഇന്നലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പതിവിലും നേരത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു

രേര പെട്ടിമുടി ദുരന്തത്തിൽ മൃതദേഹം കണ്ടെത്താൻ സഹായിച്ച കുവി യെന്ന നായയെ ഇടുക്കി ഡോഗ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തി പരിശീലനം നൽകി കുവി യുടെ സേവനം പൊലീസിൽ ഉപയോഗിക്കാനാണ് തീരുമാനം രദേ ത്യശൂർ ജനറൽ ആശുപത്രിയിൽ നവീകരിച്ച രക്ത ബാങ്കും രക്തഘടക വേർതിരിക്കൽ യൂണിറ്റും മന്ത്രി കെ

ആധുനിക രീതിയിൽ നിർമ്മിച്ച രോഗീ സൌഹൃദ ഒ പി കാത്തിരിപ്പ് കേന്ദ്രം മന്ത്രി വി

രേര പുനലൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ പുതിയ ഇരുനില മന്ദിരം മന്ത്രി കെ

ദേശീയ ആരോഗ്യ ദൌത്യം വഴി ലഭ്യമാക്കിയ ഒരു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിയം നിർമ്മിച്ചത് രുമ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് ലൈഫ് മിഷൻ അഴിമതി തുടങ്ങിയ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ

തിരുവനന്തപുരം ബി ജെ പി കാര്യാലയത്തിലാണ് ഉപവാസം

ഇക്കാര്യം കാണിച്ച് ഡിപ്പോ മാനേജർമാർക്ക് സർക്കുലർ അയച്ചിട്ടുണ്ട്